സുപ്രീംകോടതി പോലും കള്ളം പറയുന്നുവെന്ന തരത്തിലാണ് കോൺഗ്രസ് റഫേൽ ഇടപാടിലെ വിധിയെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന തെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി ഇന്ത്യൻ സേനയെ ഇടിച്ചു താഴ്ത്തി കാണിക്കാനും അവർ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു മുൻ ഗവൺമെൻ്റുകളുടെ കാലത്തെ സൈനിക ഇടപാടുകൾ അഴിമതിയുടെ കറപുരണ്ടവയായിരുന്നുവെന്ന് ബോഫേഴ്സ് ഇടപാടും അഗസ്ത വെസ്റ്റ്ലാൻഡ് ഇടപാടും ഓർമ്മിപ്പിച്ച് നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യയുടെ സൈനികശേഷി ശക്തിപ്പെടുന്നതിൽ താൽപര്യമില്ലാത്ത ശക്തികളുമായി കോൺഗ്രസ് അണിചേരുകയാണെന്നും മോദി ആരോപിച്ചു റായ്ബറേലി യിലെ ബഹുജനറാലിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഭര ണത്തിൽ വന്ന ദിവസം മുതൽ കള്ളം മാത്രം പറയുന്ന ഒരാളുടെ പരാ മർശമെന്ന നിലയിൽ പ്രധാനമന്ത്രിയുടെ ആരോപണങ്ങളെ അവഗണിക്കു ന്നതായി കോൺഗ്രസ് വക്താവ് ആനന്ദ്ശർമ്മ ന്യൂഡൽഹിയിൽ പ്രതികരി ച്ചു

കോടതി യെയും പാർലമെന്റിനെയും വ്യാജരേഖകൾ നൽകി ഗവൺമെന്റ് തെറ്റിദ്ധരി പ്പിച്ചുവെന്നാരോപിച്ചായിരിക്കും നോട്ടീസെന്ന് പാർട്ടി കേന്ദ്രങ്ങൾ അറിയിച്ചു വനിതാസംവരണ ബിൽ പാസ്സാക്കാൻ എല്ലാ രാഷ്ട്രീയ കക്ഷി കളും സമവായത്തിലെത്തണമെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു അഭ്യർത്ഥിച്ചു

മധ്യപ്രദേശിൽ കമൽനാഥും രാജ സ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടും ഛത്തീസ്ഗഡിൽ ഭൂപേഷ് ഭഗേലുമാണ് മുഖ്യമന്ത്രിമാരാകുന്നത്

കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി മൂന്നിടത്തും ചടങ്ങുകളിൽ പങ്കെടുക്കും പ്രമുഖ പ്രതിപക്ഷ പാർട്ടി നേതാക്കളെയും ചട ങ്ങുകളിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്

ഇന്നുരാവിലെ മുതൽ താൽക്കാലിക കണ്ടക്ടർമാർക്ക് പിരിച്ചുവിടൽ നോട്ടീസ് കൈമാറും ഇതോടൊപ്പം പി എസ് സി റാങ്ക് പട്ടികയിലെ ഉദ്യോ ഗാർത്ഥികൾക്ക് നിയമന ശുപാർശയും നൽകി തുടങ്ങും

നിയ മവിരുദ്ധമായി സംഘം ചേരുന്നതിനും പ്രകടനം പൊതുയോഗം വഴിതട യൽ എന്നിവ നടത്തുന്നതിനും വിലക്കുണ്ട് എന്നാൽ തീർത്ഥാടകർ ഒറ്റയ്ക്കോ കൂട്ടമായോ എത്തുന്നതിനും ശരണം വിളിക്കുന്നതിനും തടസ്സ മില്ല

പാർട്ടി നേതാവ് സി

അദ്ദേഹത്തിന്റെ സത്യഗ്രഹം ഇന്ന് എട്ടാം ദിവസത്തേക്ക് കടന്നു ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റ് കപടമുഖം ജനം താമസിയാതെ തിരിച്ചറിയുമെന്ന് പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോ ജകൻ കെ നന്ദകുമാർ കാസർക്കോട്ട് അഭിപ്രായപ്പെട്ടു ഹിന്ദുസമാജോത്സ വത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു നന്ദകുമാർ യു ഡി എഫ് ഇന്ന് സെക്രട്ടേറിയറ്റിനും കലക്ട്രേറ്റുകൾക്കും മുന്നിൽ ധർണ്ണ സംഘടിപ്പിക്കുമെന്ന് കൺവീനൽ ബെന്നി ബെഹ്നാൻ തിരു വനന്തപുരത്ത് അറിയിച്ചു ശബരിമലയിലെ നിരോധനാജ്ഞ പിൻവലിക്ക ണമെന്നും ഗവൺമെന്റ് ചെലവിൽ വർഗ്ഗീയമതിൽ സംഘടിപ്പിക്കരുതെന്നും ആവശ്യപ്പെട്ടാണ് ധർണ്ണ ് ് ് ് ് ് ് ് മലയോര ഹൈവേയും തീരദേശ ഹൈവേയും യാഥാർത്ഥ്യമാ വുന്നതോടെ സംസ്ഥാനത്തെ പിന്നാക്ക മേഖലകളിൽ വലിയ വികസന മുന്നേറ്റമുണ്ടാകുമെന്ന് മന്ത്രി ജി സുധാകരൻ അഭിപ്രായപ്പെട്ടു കാസർക്കോട്ട് കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തിനെയും വെസ്റ്റ് എളേരി ഗ്രാമപഞ്ചായ ത്തിനെയും ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന പെരുമ്പട്ട പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ എക്സൈസ് വകുപ്പ് സംസ്ഥാ നത്ത് ആയിരം കോടി രൂപയുടെ മയക്കുമരുന്ന് പിടികൂടിയതായി എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് അറിയിച്ചു റാന്നി താലൂക്ക് ആശു പത്രി കേന്ദ്രമാക്കി പ്രവർത്തന മാരം ഭിച്ച വിമുക്തി ലഹരി വിമോചനകേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ഹോക്കി ലോകകപ്പ് കിരീടം ബെൽജിയത്തിന്റ്

നിശ്ചിത സമയത്തും പെനൽട്ടി ഷൂട്ടൌട്ടിലും തുല്യത പാലിച്ചതിനെ തുടർന്നാണ് മത്സരം സഡൻഡെത്തിലേക്ക് നീങ്ങിയത്

ഐ എസ് എൽ ഫൂട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മുംബൈ യ്ക്കെതിരെ ദയനീയ പരാജയം ഒന്നിനെതിരെ ആറു ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് മുംബൈ എഫ് സിയോട് തോറ്റത്

ഡൽഹിയിൽ ദേശീയ ജൂനിയർ സ്കൂൾ മീറ്റിൽ കേരളത്തിന് ആദ്യ സ്വർണം

ഇതോടെ മീറ്റിൽ കേരളത്തിന്റെ മെഡൽ നേട്ടം ഏഴായി

കോഴിക്കോട്ടും മലപ്പുറത്തും ഇന്ന് ജില്ലാതല പട്ടയ വിതരണ മേള നടക്കും കോഴിക്കോട്ട് മന്ത്രി ഇ ചന്ദ്രശേഖരൻ മേള ഉദ്ഘാടനം ചെയ്യും മന്ത്രി എ

മന്ത്രിമാരായ ഇ ചന്ദ്രശേഖരൻ കെ ടി ജലീൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും

കാലിക്കറ്റ് സർവകലാശാലയുടെ സുവർണജൂബിലി ആഘോഷങ്ങൾ ഇന്ന് സമാപിക്കും സമാപന സമ്മേളനം രാവിലെ ചാൻസ് ലർ കൂടിയായ ഗവർണർ പി സദാശിവം ഉദ്ഘാടനം ചെയ്യും

ഇടുക്കി ജലവൈദ്യുത പദ്ധതി പ്രദേശത്തെ പത്തുചെയിൻ മേഖ ലയിൽ പട്ടയം നൽകുന്നതിന് എതിർപ്പില്ലെന്ന് കാണിച്ച് കെ എസ് ഇ ബി റവന്യൂവകുപ്പിന് കത്ത് നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി എം എം മണി അറിയിച്ചു ശാന്തൻപാറയിൽ എച്ച് ആർ ടി ടി യൂണിയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

അക്വേറിയത്തിനും ലേസർ ഷോയ്ക്കും നടപടി ആരംഭിച്ചു സംസ്ഥാന ഹൈഡൽ ടൂറിസം വകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത്

ജനശ്രീ ജില്ലാ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളുടെ ഏകദിന കൃാമ്പ് പത്തനംതിട്ടയിൽ ഉദ്ഘാടനം ചെയ്യുക യായിരുന്നു അദ്ദേഹം

കണ്ണൂർ ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ കടന്നു കൂടിയ കാട്ടാനകളിൽ ഒരെണ്ണത്തെ കൂടി ഇന്നലെ കാട്ടിലേക്ക് തിരിച്ചുവി ട്ടു ഇനി മൂന്ന് കാട്ടാനകൾ കൂടി ജനവാസമേഖലയിൽ ശേഷിക്കുന്നുണ്ട്

നഗരസഭ വൈസ് ചെയർമാൻ പി

ചടങ്ങിൽ ചാൻസലർകൂടിയായ ഗവർണർ ജസ്റ്റിസ് പി സദാശിവം പ്രൊ ചാൻസലർ വി

കശുമാവിൻ തോട്ടങ്ങളും റബ്ബർ മരങ്ങളും കത്തിന ശിച്ചു രാത്രി പത്തുമണിയോടെയാണ് തീ നിയന്ത്രണവിധേയമായത്

പ്രമോഷൻ കൌൺസിലും ടൂറിസം വകുപ്പും സംഘടിപ്പിച്ച ഗ്രാറ്റിറ്റ്യൂഡ് റൈഡ് പാലക്കാട്ട് കോട്ടയിൽ എം

രാജേഷ് എം പി ഫ്ളാഗ് ഓഫ് ചെയ്തു പ്രളയാനന്തര കേരളത്തെപ്പറ്റി ഉയർന്ന ആശങ്കകൾ ദൂരീകരിക്കാ നാണ് യാത്ര സംഘടിപ്പിച്ചത്

കണ്ണൂർ നിലയത്തിന്റെ പ്രസരണശേഷി വർദ്ധിപ്പിക്കണമെന്ന് അഖിലകേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു ബക്കളം എ കെ ജി മന്ദിരത്തിൽ ചേർന്ന സുഹൃദ്സം ഗമം നടൻ സദാനന്ദൻ ചേപ്പറമ്പ് ഉദ്ഘാടനം ചെയ്തു അസോസിയേ ഷൻ ജില്ലാ പ്രസിഡന്റ് മോഹനൻ അലോറ അധ്യക്ഷനായിരുന്നു